പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നിവരെ വധിക്കാൻ മാവോയിസ്റ്റുകൾ ലക്ഷ്യമിടു്നു്തായി മഹാരാഷ്ട്ര പോലീസ്

ജമ്മുകാശ്മീർ അതിർത്തി മേഖലയിൽ വസിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ്

നാലാം വ്യാവസായിക വിപ്സവത്തിന് ഇന്തൃയെ ഒരുക്കാൻ പുതിയ വൃാവസായിക നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു

കൊറെഗാവ് ഭീമ കലാപത്തിൽ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കുന്നതിടെയാണ് പോലീസ് കത്തുകൾ കണ്ടെത്തിയത് ഡൽഹി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റ് റോണാ വിൽസന്റെ വസതിയിൽ നിന്നാണ് ഒരു കത്ത് കണ്ടെത്തിയത് കൊറെഗാവ് ഭീമ കലാപവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അഞ്ച് പേരിൽ ഒരാളാണ് റോണ

ജെ പി ഗവൺമെന്റ് സ്ഥാപിച്ചതായും ഇത് തുടർന്നാൽ മാവോയിസ്റ്റുകൾക്ക് ഭീഷണിയാകുമെന്നും പറയുന്നു രാജീവ് ഗാന്ധിയെ വധിച്ചു രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾ ലക്ഷ്യം വെച്ച് ഇല്ലാതാക്കാനാണ് മാവോയിസ്റ്റുകൾ ആലോചിച്ചതെന്ന് പോലീസ് അറിയിച്ചു

ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും പ്രാദേശിക വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാരൃ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ജമ്മുവിലെ ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ആർ

പുര നഗരത്തിൽ താമസിക്കുന്നവരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി വിശദാംശങ്ങളുമായി സുനീഷ്

അതിർത്തി മേഖലയിൽ താമസിക്കുന്ന യുവാക്കൾക്കുവേണ്ടി കേന്ദ്രം രണ്ട് പ്രത്യേക ബെറ്റാലിയനുകൾക്ക് രൂപം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു ജമ്മുകാശ്മീരിൽ സ്ഥാപിക്കുന്ന അഞ്ച് ഐ

ന്യൂസ് ടെസ്ക് ആകാശവാണി

ഗോയലിനെതിരെ ഒരു വൃവസായി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആതിഥൃനാഥ് ചീഫ് സെക്രട്ടറി രാജീവ് കുമാറിനോട് ആവശ്യപ്പെട്ടു

ഗുപ്ത പ്രിൻസിപ്പിൾ സെക്രട്ടറിക്കെതിരെ ഗവർണർ റാം നായികിന് പരാതി നൽകുകയും അദ്ദേഹം മുഖ്യമന്ത്രിയ്ക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം ബി ജെ പിയുടെ യുപി ഘടകത്തിലെ ഒരു ഭാരവാഹി ശ്രീ ഗുപ്തയ്ക്കെതിരെ ഉന്നയിച്ച പരാതിയിന്മേൽ ലക്നൌ പോലീസ് എഫ്

ഹ്രസ്വകാല വായ്പ എടുക്കുന്ന തീയതി മുതൽ ഒരു വർഷമാണ്

കടക്കെണിയിലായ എയർ ഇന്ത്യ മെയ് മുതൽ ജീവനക്കാരുടെ ശമ്പളം നല്കിയിട്ടില്ല

ഏഴ് എട്ട് വർഷത്തിനകം സാമ്പത്തിക വളർച്ച അഞ്ച് ട്രില്ല്യൻ ഡോളറാകാൻ ലക്ഷ്യമിട്ട് പുതിയ വാണിജ്യനയത്തിന് രൂപം നൽകാൻ നടപടികൾ കൈക്കൊണ്ട് വരുന്നതായും അദ്ദേഹം പറഞ്ഞു

അഗർത്തലയിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് വിതരണം

ഗോമതി ജില്ലയിലെ ഉദയ്പൂർ നഗരത്തെ ദക്ഷിണ ത്രിപുരയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത് ത്രിപുരസുന്ദരി ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള മാതാബായി ക്ഷേത്ര സമുച്ചയത്തിന്റെ പുനർ വികസനത്തിനായുള്ള ശിലാസ്ഥാപ്പുന്നവും രാഷ്ട്രപതി നിർവഹിച്ചു

എ ഗവൺമെന്റ് നാല് വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ആകാശവാണിയുടെ ന്യൂസ് സർവ്വീസസ് ഡിവിഷൻ ഒരു പ്രത്യേക പരമ്പര പ്രക്ഷേപണം ചെയ്തുവരികയാണ് മോദി ഗവൺമെന്റിന്റെ നാല് വർഷങ്ങൾ എന്ന ഈ പരമ്പരയിൽ വിവിധ മന്ത്രാലയങ്ങളുടെ നേട്ടങ്ങൾ എടുത്തുകാട്ടുന്നു ഇന്ന് ഈ പരമ്പരയിൽ ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി രാം വിലാസ് പാസ്വാന്റെ അഭിമുഖം കേൾക്കാം ഇന്നത്തെ പരിപാടിയുടെ പ്രമേയം പൊതുവിതരണ സമ്പ്രദായത്തിലെ സംരംഭങ്ങൾ എന്നതാണ് പൊതുവിതരണ സമ്പ്രദായത്തിൽ ചോർച്ചയൊഴുവാക്കാൻ റേഷൻകാർഡും ആധാറുമായി ബന്ധിപ്പിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായി ശ്രീ പാസ്വാൻ പറഞ്ഞു

ഗോൾഡിൽ കേൾക്കാം

ഗ്രേറ്റർ മുംബൈ മുൻസിപ്പൾ കോർപ്പറേഷൻ എല്ലാ പരിപാടികളും റദ്ദാക്കി ആസ്ഥാനത്തെത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരോടും വകുപ്പ് തലവ്യന്മാരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്

വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ദക്ഷിണ കന്നഡ ഉഡുപ്പി ജില്ലാ ഭരണകൂടങ്ങൾ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി